സ്വച്ച് ഭാരത് അഭിയാൻ നിർവ്വഹണത്തിന് പ്രധാനമന്ത്രി ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം ഏറ്റുവാങ്ങി

് ഇന്ത്യുമായി ഉടൻ വ്യാപാര കരാർ ഒപ്പിടുമെന്ന് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതു സഭാ സമ്മേളനത്തിനിടെ നടത്തീയ് കൂടിക്കാഴ്ചയിൽ ട്രംപ് വ്യക്തമാക്കി ഇരുരാജ്യങ്ങളും തമ്മിൽ മികച്ച വ്യാപാര ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് പ്രതികരിച്ചു വിശദാംശങ്ങളുമായി സോഫിയ ഡാനിയേൽ വോയ്സ് രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര പ്രതിസന്ധികൾ ഇരു പരിഹരിക്കുകയും ഇരുദിശകളിലേക്കുമുള്ള കച്ചവട ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ടംപ് പറഞ്ഞു

കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും സംയുക്ത വാർത്താസമ്മേളനം നടത്തി കശ്മീർ പ്രശ്നം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഉടൻ പരിഹരിക്കാനാകുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ശ്രീ

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്ച് പ്രിസന്ധികൾക്ക് പരിഹാരം കാണുമെന്നും ശ്രീ

യു എൻ ആസ്ഥാനത്ത് സ്ഥാപിച്ച ഗാന്ധി സൌരോർജ്ജ പാർക്കിന്റെ ഉദ്ഘാടനം ശ്രീ മോദി മറ്റ് രാഷ്ട്ര നേതാക്കളോടൊപ്പം നിർവ്വഹിച്ചു

ഗാന്ധിജി ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ട നേതാവാണെന്നതിന് ദൃഷ്ടാന്തമാണ് സൌരോർജ്ജ പാർക്കെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗാന്ധിജിയെ നേരിൽ കണ്ടിട്ടില്ലാത്തവരുടെ ജീവിതത്തിൽപ്പോലും അദ്ദേഹത്തിന്റെ ചിന്തകൾ സ്വാധീനിച്ചിട്ടുണ്ട് ജനാധിപതൃത്തിന്റെ യഥാർത്ഥ ശക്തിക്കാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി അനുസ്മരിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി പരിഗണിച്ച് ബിൽ ആന്റ് മെലിൻഡ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ ഗ്ലോബൽ ഗോൾ കീപ്പർക്കുളസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ശുചിത്വ പരിപാടി വിജ്യൂിപ്പിക്കുന്നതിന് പങ്കാളികളായ കോടിക്കണക്കിന് ഇന്ത്യാക്കാർക്ക് കൂടിയുള്ള ആദരവാണ് ഈ പുരസ്കാരമെന്ന് ശ്രീ മോദി പറഞ്ഞു

രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തിലെ മഹത് വൃക്തികളിലൊരാളായി പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം തന്നെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ അനുകമ്പയോടെ സേവിക്കുന്നതിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വാർത്താ വിതരണ പ്രക്ഷേപണവകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും പണ്ഡിറ്റ് ദീൻ ദയാലിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു

കൂട്ടീകര സംഘടനയായ ജമാ അത് ഉൾ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്നു സ്ക്ലെടനയുടെ പ്രവർത്തകനായ ജഹിദുൾ ഇസ്താമിൽ നിന്നും ലുഭിച്ചു വിവരങ്ങളെ തുടർന്നായിരുന്നു പരിശോധന

ബോംബുകളും ഗ്രനേഡുകളും ഉപയോഗ്ീക്കുന്നത് സംബന്ധിച്ചു ലഘുലേഖകളും എൻ

കണ്ടെടുത്തു

ചെന്നൈയിൽ ഐസിജിഎസ് വരാഹ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമുദ്ര തീരങ്ങളിലൂടെയുള്ള തീവ്രവാദത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് ആഹാനം ചെയ്തു കേരളം മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരിട്ട പ്രളയക്കെടുതികളിൽ തീരദേശ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യം ഗുരുതരമായ ഭീകരവാദ വെല്ലുവിളികൾ നേരിടുന്നുവെന്നും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും രാജ്യരക്ഷാമന്ത്രിപറഞ്ഞു ചടങ്ങിൽ ഒമ്പത് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതിയുടെ കോസ്റ്റ് ഗാർഡ് മെഡലുകൾ ശ്രീ

ദിവ്യാംഗർക്കും മുതിർന്ന പൌരൻമാർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നടപടി

സ്ത്രീകൾക്ക് ബോധവത്കരണം ലഭിക്കാത്തതും വിദ്യാഭ്യാസ ആവശ്യമായ കുറവുമാണ് ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് കാരണം അംഗുൽ പുഷ്ഠി അധികാർ അഭിയാൻ എന്ന പദ്ധതിയിലൂടെ രണ്ടായിരത്തിലധികം പേരെ വനിത ശിശു ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അംഗുൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗൻവാടി പ്രവർത്തകർ സർപഞ്ചുകൾ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നിരീക്ഷണ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്

വിപണികളിലും കടകളിലും മാളുകളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെയും ഗുണനിലവാരമില്ലാത്ത പോളിത്തീൻ സഞ്ചികളും ഒഴിവാക്കി പകരം അനുയോജ്യമായ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കും

അടുത്ത മാസം ഒൻപതിനാണ് അടുത്ത ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിനം

ചൈനയുടേയും മൃാൻമാറിലേയും വിദേശ കാര്യമന്ത്രിമാരുമായി താൻ ചർച്ച നടത്തിയതായി ഡോ

ഏകപക്ഷീയമായ ഒരു ഗോളിനാ്ണ്ട് മണിപ്പൂർ പരാജയപ്പെടുത്തിയത് അരുണാചൽപ്രദേശിലെ പാസിഗട്ടിൽ സി എച്ച് എസ് ഗ്രൌണ്ടിലായിരുന്നു മത്സരം